വോട്ടെടുപ്പ് നാളെ ഒരുക്കങ്ങൾ പൂർത്തിയായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളം ചാമ്പ്യൻമാർ

പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചേരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനയ്കുമാർ ചൌബെ അറിയിച്ചു

അതേസമയം അഞ്ചാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്കുശേഷം ധുംകയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും

തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക്യായിരുന്നു നേതാക്കൾ ഈ സംസ്ഥാനത്ത് നിയമസ്ട്രിട്ടാ തെരഞ്ഞെടുപ്പിനിടെ ഇത് രണ്ടാം തവണയാണ് ബി ജെ പി വിമതർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്

പൌരത്വ ഭേദഗതി നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വിഭാഗം പ്രചരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അസമിലെ ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി താൻ ഒന്നും ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചർച്ചയിലൂടെ ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ തന്റെ ഗവൺമെന്റ് എപ്പോഴും തയ്യാറാണെന്ന് സർബാനന്ദ് സോനോവാൾ പറഞ്ഞു ശ്രീ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയേയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയേയും സന്ദർശിച്ച് സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ അറിയിക്കും ഗുവഹാത്തിയിലും ദിബ്രുഗഡിലും സ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് കർഫ്യൂവിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്

രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണെന്നും അവ ജനങ്ങൾക്ക് പ്രചോദനം നൽകി എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

രാജ്യത്തിന്റെ ഐക്യത്തിന് വഴിതെളിച്ച ഭാരത രത്നമാണ് പട്ടേൽ എന്ന് അമിത്ഷാ ട്വീറ്റുകളിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ശക്തമായ ഇച്ഛാശക്തിയും ദൃഡനിശ്ചയവും ജനങ്ങൾക്ക് ഏറെ പ്രചോദനമേകി എന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

നാഗ്പൂരിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കവെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് ആർ

ഈ സാഹചരൃത്തിലാണ് ചീഫ് ജസ്റ്റിസ് എസ്

കോടതിയിൽ കേസുകളുടെ മേൽനോട്ടത്തിനും മറ്റും നിർമ്മിത ബുദ്ധി സഹായിക്കുമെങ്കിലും സാങ്കേതികത്വത്തെ കൂടുതൽ ആശ്രിക്കുന്നത് നല്ലതല്ല എന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ആർ

അതിനാൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രയോഗത്തിലാക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഗുണവും ദോഷവും വില്ലയിരുത്തണമെന്നും മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു

മാഡ്രിഡിൽ നടക്കുന്ന രണ്ടാഴ്ചത്തെ ചർച്ചയിൽ ചിലിയുടെ പരിസ്ഥിതി മന്ത്രി കരോലിന ഷ്മിതാണ് അധ്യക്ഷത വഹിക്കുന്നത്

വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എതിർപ്പുയർത്തുകയാണ് പ്രതിനിധികൾ

റ്റിലേയിലും സ്വർണം നേടിയതോടെ ആൻസി സോജന്റെ മീറ്റിലെ സ്വർണ്ണനേട്ടം നാലായി

ഇന്ന് നടന്ന ആറ് ഫൈനലിൽ രണ്ട് വീതം സ്വർണ്ണവും വെള്ളിയും വെങ്കലവും കേരളം കരസ്ഥമാക്കി

രാജ്ധാനി എഫ് എം റെയിൻബോ എന്നിവയിലും ഉച്ചയ്ക്ക് ഒരു മണിമുതൽ വിവരണം കേൾക്കാം പരിക്കേറ്റ ഭുവനേശ്വർ കുമാറിന് പകരം മുംബൈ പെയ്സ് ബൌളർ ഷർദുൽ ടാക്കൂറാണ് കളിക്കുക

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് പുതിയ നിയമം കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്

സ്ത്രീകൾക്കെതിരായ കുറ്റകൃതൃങ്ങൾ ചെയ്യുന്നവർക്ക് വധശിക്ഷ അടക്കം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ആസിഡ് ആക്രമണം പീഡനം എന്നിവ പുതുതായി കൊണ്ടുവരുന്ന ചട്ടങ്ങളുടെ പരിധിയിൽ വരും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാ വഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കി ഈ സംവിധാനം വളരെ സുഗമമായി പ്രവർത്തിക്കുന്നുന്നെ് നാഷണൽ ഹൈവേ അതോറിട്ടി ഓഫ് ഇന്തൃയിലെ ഉദ്യോഗസ്ഥൻ ആകാശവാണിയൊട് പറഞ്ഞു

പ്രതിഷേധപ്രകടനങ്ങളിൽ കുട്ടികള്ള് പങ്കാളികളാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാനങ്ങളിലെ ഡി ജി

പ്രതിഷേധങ്ങളുമായി ബ്ലീസ്സ്പ്പെട്ടുള്ള കല്ലേറ് തുടങ്ങി അക്രമാസക്തമായ പ്രവൃർത്തുനങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് കമ്മീഷന്റെ ഇടപെടൽ

വിവിധ മേഖലകളിലുള്ള സ്ഥാപനങ്ങൾക്ക് ആണ് അവാർഡ് നൽകിയത്

രാജ്യത്തിന്റെ വികസനത്തിന് ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത ശ്രീ

സിംഗ് ചടങ്ങിൽ ഉയർത്തിക്കാട്ടി

വ്യാപാര വയുദ്ധത്തെ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചുകളുടെ പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പുതിയ നീക്കം അമേരിക്കൻ നിർമ്മിത വാഹനങ്ങൾക്കും ഘടക ഭാഗങ്ങൾക്കുമുള്ള അധിക നികുതിയാണ് താൽക്കാലികമായി പിൻവലിച്ചത്

മുംബൈയിൽ ഇന്നലെ മനോഹർ പരീക്കർ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം നടത്തുകയായിരുന്നു അദ്ദേഹം

ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലാണ് ഈ പോലീസ് സ്റ്റേഷനുകൾ ഉള്ളത്